ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു

നാട് ഒരുമിച്ചതിനാൽ സംസ്ഥാനത്തെ പ്രളയ കെടുതിയുടെ ആഘാത്ം കുറയ്ക്കാനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയിൻ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു ഇന്ന് ആറ് മരണം

വിവിധ ജില്ലകളിൽ ഉരുൾപൊട്ടൽ വ്യാപക നാശനഷ്ടം

നെടുമ്പാശ്ശേരി വിമാനത്താവളം ശനിയാഴ്ചവരെ അടച്ചു പ്രശസ്ത കവി ചെമ്മനം ചാക്കോയ്ക്ക് അന്ത്യാഞ്ജലി

സംസ്കാരം ശനിയാഴ്ച

പൊതു ജനാരോഗ്യം ലക്ഷ്യമിട്ട് രാജ്യത്തെമ്പാടും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ അഭിയാൻ പദ്ധതിയിൻ കീഴിൽ ഒന്നര ലക്ഷം ആരോഗ്യ ക്ഷേമ കേന്ദ്രങ്ങൾ ആരംഭിക്കും രാജ്യത്തെ എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൃക്തമാക്കി

തലസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു നാട് ഒരുമിച്ചതിനാൽ പ്രളയക്കെടുതി ആഘാതം കുറയ്ക്കാനായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ തലസ്ഥാനത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്ഥീകരിച്ചു പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്നും ഒന്നിച്ച് നിന്നാൽ ഏത് കൊടിയ ദുരന്തവും നേരിടാൻ കഴിയുമെന്ന സന്ദേശമാണ് ദുരന്തനിവാരണ പ്രവർത്തനങ്ങളിലൂടെ കേരളം നൽകിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജീവകാരുണ്യ നടപടികളിലൂടെയാവട്ടെ നമ്മുടെ ഇക്കൊല്ലത്തെ സ്വാതന്ത്യദിനാഘോഷമെന്നും അദ്ദേഹം പറഞ്ഞു പ്രകൃതി സംരക്ഷണം നിത്യ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് കൊല്ലം ജില്ലാ ആസ്ഥാനത്ത് ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന ചടങ്ങിനെ അഭിസംബോധന ചെയ്ത മന്ത്രി ജെ

ആലപ്പുഴ ജില്ലാ ആസ്ഥാനത്ത് മന്ത്രി ജി

കോട്ടയം പൊലീസ് ഗ്രൌണ്ടിൽ മന്ത്രി കെ

മഴയെത്തുടർന്ന് കൂടുതൽ പരിപാടികൾ ഇല്ലാതിരുന്ന പത്തനംതിട്ടയിൽ മന്ത്രി മാത്യു ടി തോമസ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്ഥീകരിച്ചു കേരളം കണ്ട ഏറ്റവും ഭയാനകമായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് മന്ത്രി വി

കൊച്ചിയിൽ സ്വാതന്ത്ര്യദിന പരേഡിൽ പതാക ഉയർത്തി മന്ത്രി അഭിവാദ്യം സ്ഥീകരിച്ചു പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന ചടങ്ങിൽ മന്ത്രി എ

രാജ്യസ്നേഹത്തോടൊപ്പം പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും വിശ്വാസവും ജനങ്ങളിൽ ഉണ്ടാകണമെന്ന് കണ്ണൂർ പൊലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന സ്വാതന്ത്യദിന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന മന്ത്രി കെ

ജനാധിപത്യത്തിൽ വേർതിരിവുകൾ ഉണ്ടാവാൻ പാടില്ലെന്ന് കാസർകോഡ് മുൻസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന ചടങ്ങിനെ അഭിസംബോധന ചെയ്ത മന്ത്രി ഇ

മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്ഥീകരിച്ചു

വി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കർമ്മീകത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പമ്പ മണപ്പുറവും തൃവേണി പാലവും മുങ്ങി ശബരിമല ഒറ്റപ്പെട്ടതിനാൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനനർക്ക് ശബരിമലയിൽ നിറപുത്തരി ചടങ്ങിന് എത്താൻ കഴിഞ്ഞില്ല

മലപ്പുറത്ത് മൂന്ന് പേർക്കും തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഒരാൾക്ക് വീതവുമാണ് ജീവഹാനി സംഭവിച്ചത്

രണ്ട് ദിവസമായി വടക്കൻ ജില്ലകളിൽ തുടരുന്ന കനത്ത മഴ ഇന്നലെ മുതൽ തെക്കൻ ജില്ലകളെയും കാര്യമായി ബാധിച്ചു ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം തുടർച്ചയായ കനത്ത മഴയാണ് വിവിധ ഭാഗങ്ങളിലുണ്ടായത്

കനത്ത മഴയെ തുടർന്ന് പ്രധാന നദികളിലെല്ലാം ജലവിതാനം ക്രമാതീതമായി ഉയർന്നു

മുല്ലപ്പെരിയാർ ഇടുക്കി ഇടമലയാർ അണക്കെട്ടുകൾ തുറന്നുവിട്ടതിനെ തുടർന്ന് പെരിയാർ നദിയുടെ തീരങ്ങൾ വെളളത്തിനടിയിലായി അനേകം വീടുകളിൽ വെള്ളം കയറി ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ കൊച്ചി നഗരത്തിലെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിലാണ് ആലപ്പുഴ തീരുത്തുനിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ വെളളം കയറിയതിനെതുടർന്ന് കടലിൽ അകപ്പെട്ട ഏഴ് മത്സ്യത്തൊഴിലാളികളിൽ നാല് പേരെ നാവിക സേനാ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി

കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് തെന്മല കണ്ണറ ഭാഗങ്ങളിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണ് ഇടിഞ്ഞ് വീണു

ഓപ്പറേഷൻസ് ഏര്യയിലടക്കം വെളളം കയറിതാണ് വിമാനത്താവളം അടയ്ക്കാൻ കാരണം വെളളപ്പൊക്കം നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങളെന്ന് അധികൃതർ അറിയിച്ചു നേരത്തെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് നിർത്തിവച്ചിരുന്നത്

കൊണ്ടോട്ടി ഐക്കരപ്പടിയിൽ കൈതക്കുണ്ടയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് മൂന്ന് പേർ മരിച്ചു കണ്ണനാരി വീട്ടിൽ സുനീറയും ഭർത്താവ് അസീസും മകൻ ആറുവയസുകാരൻ ഉബൈദുമാണ് മരിച്ചത് വീട്ടിനകത്ത് ഉണ്ടായിരുന്ന രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്തി

കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൂട്ടിലങ്ങാടി കീരം കുണ്ടിൽ വെള്ളം കയറിയതിനാൽ ഗതാഗതം നിലച്ചു

മന്ത്രി എ

ബാലൻ ഇന്ന് അപ്നാഘർ സന്ദർശിക്കും

അച്ചൻകോവിൽ അലിമുക്ക് റോഡിൽ ഗതാഗത നിരോധനമുണ്ട്

കൊല്ലം ആയുർ അഞ്ചൽ റോഡിൽ പൂർണ്ണമായും ഗതാഗതം തടസപ്പെട്ടു കല്ലടയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് മൈക്ക് അനൌൺസ് മെന്റ് നടത്തിവരുന്നു ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു

ഇന്നലെ കാക്കനാട് പടമുകളിലെ ചെമ്മനം വീട്ടിൽ അർദ്ധരാത്രിയോടെയാണ് അന്ത്യം

ആധുനിക മലയാള ഹാസ്യ കവിതാ മേഖലയെ പുഷ്ടിപ്പെടുത്തിയ കവി എന്ന നിലയിലാണ് ചെമ്മനം ഓർക്കപ്പെടുക ഗവൺമെന്റ് ഓഫീസുകളിലെ ജനവിരുദ്ധ ഇടപെടലുകളെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലയിലെ പോരായ്മകളെക്കുറിച്ചുമൊക്കെയുള്ള അദ്ദേഹത്തിന്റെ കാവ്യ വിമർശനങ്ങൾ മർമ്മത്ത് തന്നെ കൊള്ളുന്നവയായിരുന്നു ആളില്ലാ കസേരകൾ എന്ന കവിത ഏറെ പ്രശസ്തമായിരുന്നു